അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ പ്രവേശന പരീക്ഷകളും ഓൺലൈനാക്കുന്ന കാര്യം പരിഗണി ക്കുമെന്ന് മന്ത്രി ഡോ

ടി ജലീൽ സെൻട്രൽ ജയിലുകളിൽ എല്ലാ ആഴ്ചയും മിന്നൽ പരിശോധന നടത്തുമെന്ന് ജയിൽ ഡി ജി പി ഋഷി രാജ് സിംഗ്

എം സംസ്ഥാന സമിതി യോഗം ഇന്ന് തിരു വനന്തപുരത്ത് തുടങ്ങും

പി ദിനേഷ് കേന്ദ്രബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക വിദഗ്ദ്ധരു മായി നടത്തിയ കൂടിക്കാഴ്ച തികച്ചും പ്രയോജനപ്രദമാ യിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി അവർ നൽകിയ വിവരങ്ങൾ ഉൾക്കാഴ്ച പ്രകടമാക്കുന്നതും ഭാവി വികസനത്തിന് പ്രയോജനപ്പെടുന്നതുമായിരുന്നെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു വിദേശനിക്ഷേപം കാർഷിക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ വികസനങ്ങൾ വാണിജൃ ക്യറ്റുമതി സാധൃ തകൾ തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകിയായിരുന്നു ചർച്ച

മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചു ആരെയും നിർബന്ധിച്ച് മാറ്റിപ്പാർപ്പിക്കില്ലെന്ന് മന്ത്രി ആലപ്പുഴയിൽ വ്യക്തമാക്കി കട ലാക്രമണ ഭീഷണി അതിജീവിക്കാൻ ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്നതിന് മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിക്കു മെന്നും മേഖലയിലെ വരുമാന വർദ്ധനവിന് വിവിധ പദ്ധ തികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു

ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ് അധൃയന വർഷം നേരത്തെയാക്കുന്ന കാര്യത്തിലും ചർച്ചകൾ നടത്തി വരികയാണെന്ന് മന്ത്രി കാലടിയിൽ പറഞ്ഞു സംസ്കൃത സർവ്വകലാശാലയുടെ ഭാഷാ ബ്ലോക്കും ജീവനക്കാരുടെ കാർട്ടേഴ്സുകളും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

എസ് ഉദ്യോഗസ്ഥൻ രാജു ന്ാരായണ സാമി യുടെ സർവ്വീസുമായി ബന്ധപ്പെട്ട വാർഷിക രഹസ്യ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചയച്ചു ഉന്ന തതല സമിതി നൽകിയ റിപ്പോർട്ടിൽ കൂടുതൽ വിശദീക രണം ആവശ്യപ്പെട്ടാണ് റിപ്പോർട്ട് മടക്കിയത് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടിൽ രാജു നാരായണ സ്വാമിക്കെതിരെ നടപടിക്ക് ശുപാർശ നൽകിയിരുന്നു സെൻട്രൽ ജയിലുകളിൽ എല്ലാ ആഴ്ചയിലും മിന്നൽ പരിശോധന നടത്തുമെന്ന് ജയിൽ ഡി ജി പി ഋഷിരാജ് സിംഗ് തൃശൂരിൽ അറിയിച്ചു കണ്ണൂർ വിയ്യൂർ സെൻട്രൽ ജയിലുകളിൽ നടത്തിയ മിന്നൽ പരിശോധനകളിൽ ഒട്ടേറെ മൊബൈൽ ഫോണുകളും മറ്റ് സാധനങ്ങളും കണ്ടെത്തി യതിനെത്തുടർന്നാണ് നടപടി

ആനകളുടെ പരിചരണത്തിനും ചികിത്സയ്ക്കുമായി കോട്ടൂരിൽ സ്ഥാപിക്കുന്ന ആന പുനരധിവാസ കേന്ദ്ര ത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം മുഖ്യമന്ത്രി പ്പിണറായി വിജ യൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും

എം സംസ്ഥാന സമിതി യോഗം ഇന്ന് തിരു വനന്തപുരത്ത് തുടങ്ങും സംസ്ഥാന സമിതിക്ക് മുന്നോടി യായി ഇന്നലെ സെക്രട്ടറിയേറ്റ് യോഗം ചേർന്നിരുന്നു ബിനോയ് കോടിയേരിക്കെതിരായ പീഡന പരാതി ആന്തൂ രിൽ പ്രവാസി വൃവസായിയുടെ ആത്മഹത്യ തുടങ്ങിയ വിഷയങ്ങൾ സംസ്ഥാന സമിതിയിൽ സജീവ ചർച്ചയാകു മെന്നാണ് റിപ്പോർട്ട് സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം സംബന്ധിച്ച റിപ്പോർട്ടും ചർച്ച ചെയ്യും

കള്ളവോട്ട് ചെയ്തവർക്കെതിരേ നിയമ നടപടി യെടുക്കാത്തതിനും വോട്ടർപട്ടികയിൽനിന്ന് യു ഡി എഫുകാരുടെ പേര് വ്യാപകമായി നീക്കം ചെയ്തതിനെ തിരേയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച കല ക്ടറേറ്റ് ധർണ്ണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുല്ലപ്പള്ളി പ്രവാസി വൃവസായിയുടെ മരണത്തിൽ ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ കുറ്റക്കാരിയാണെന്നും മുല്ലപ്പള്ളി ആരോ പിച്ചു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് സാജന്റ് വീട് സന്ദർശിക്കും അതിനിടെ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ നേഷണം കണ്ണൂർ നാർക്കോട്ടിക് ഡി

പി വി

അന്വേഷണം ഇന്ന് ആരംഭിക്കും അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ് സർവ്വീസുകൾ നാളെ മുതൽ നിർത്തിവെയ്ക്കുമെന്ന് ഇന്റർ സ്റ്റേറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ കൊച്ചിയിൽ വ്യക്തമാക്കി ഒറ്റപ്പെട്ട സംഭ വങ്ങളുടെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് ബസ്സുടമ കൾക്കെതിരെ സ്വീകരിക്കുന്ന നടപടികളിൽ പ്രതിഷേധിച്ചാണ് സർവ്വീസ് നിർത്തിവെക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയി ച്ചു ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്തൃയ്ക്ക് നാലാം വിജയം

ഇന്നത്തെ മത്സരത്തിൽ പാക്കിസ്ഥാൻ ദക്ഷിണാഫ്രി ക്കയെ നേരിടും അന്തർദേശീയ ഒളിംപിക് ദിനമായ ഇന്ന് കോഴിക്കോട്ട് ഒളിം പിക് അസോസിയേഷനും സ്പോർട്സ് കൌൺസിലും സംയു ക്തമായി സംഘടിപ്പിക്കുന്ന ഒളിംപിക് ഡേ റൺ രാവിലെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിക്കും മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്യും തീരദേശ ഹൈവേ നിർമ്മാണത്തിന്റെ പ്രാഥമിക പ്രവർത്ത നങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ നാളെ തുടക്കമാകുമെന്ന് മന്ത്രി ജെ

കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കുക യായിരുന്നു മന്ത്രി പാതയുടെ നിർമ്മാണം ജനവാസ മേഖലകൾ പരമാവധി ഒഴിവാക്കി നടത്തും തീരദേശം കേന്ദ്രീകരിച്ച് സ്ഥലം ഏറ്റെ ടുക്കുന്നതിന് മാർഗ്ഗ നിർദ്ദേശങ്ങൾ നൽകിയതായും മന്ത്രി പറഞ്ഞു കോലഞ്ചേരി കക്കാട്ടുപാറയിലെ അനധികൃത ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പ് ആരോഗ്യവകുപ്പ് അടച്ചു പൂട്ടി ച്ചു ഗുരുതരമായ മാലിന്യപ്രശ്നവും പകർച്ചവ്യാധി ഭീഷ ണിയും ഉണ്ടെന്ന സമീപവാസികളുടെ പരാതിയിലാണ് നട പടി

വരും ദിവസങ്ങളിലും തൊഴിലാളി ക്യാമ്പുകളിൽ പരിശോ ധന തുടരുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു തമിഴ്നാട്ടിൽനിന്ന് ഇടുക്കി ജില്ലയിലേക്ക് കഞ്ചാവ് വിത രണം ചെയ്യുന്ന സംഘത്തിലെ ഒരാളെ ബോഡിമെട്ടിൽ എക്സൈസ് പിടികൂടി തേനി സ്വദേശിയായ സുരേഷ് എന്ന യാളെ ഒരു കിലോയിലേറെ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്യുക യായിരുന്നു

കോഴ ഞ്ചേരി സ്വദേശികളായ ജയേഷ് ജയചന്ദ്രൻ അനന്തു വിജ യൻ എന്നിവരാണ് കമ്പത്തുനിന്ന് വാങ്ങിയ കഞ്ചാവ് ഇരു ചക്ര വാഹനത്തിൽ കടത്താൻ ശ്രമിച്ചത് കല്ലട ബസ്സിൽ രണ്ടാം ഡ്രൈവറുടെ പീഡനത്തിനിര യായ തിരുച്ചിറപ്പള്ളി സ്വദേശിനിയുടെ രഹസ്യമൊഴി രേഖ പ്പെടുത്താൻ പൊലീസ് കോടതിയെ സമീപിച്ചു കണ്ണൂ രിൽനിന്നും കൊല്ലത്തേക്ക് പോകുന്നതിനിടെ കാക്കഞ്ചേ

സംസ്ഥാനത്തെ ഹൈടെക് ക്ലാസ്റൂം പദ്ധതി അടുത്ത മാസം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ് മലപ്പുറത്ത് അറിയിച്ചു

മലപ്പുറം നെല്ലിശ്ശേരി എ ജെ ബി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി ഗൾഫിലെ വേനലവധി ആരംഭിക്കാനിരിക്കെ വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച നട്പടിക്കെതിരെ കേന്ദ്ര ഗവൺമെന്റ് അടിയന്തിരമായി ഇടപെടണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടു വിമാനക്കമ്പനി കൾ ടിക്കറ്റ് നിരക്ക് അഞ്ചിരട്ടിവരെ വർദ്ധിപ്പിച്ചതായി തങ്ങൾ കുറ്റപ്പെടുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാത്ലാബിന്റെ പ്രവർത്തനം പുനഃസ്ഥാപിക്കാൻ നടപടിയെടുക്കണമെന്നാ വശ്യപ്പെട്ട് എം കെ രാഘവൻ എം പി മുഖ്യമന്ത്രിക്കും ആരോ ഗ്യമന്ത്രിക്കും കത്തയച്ചു

നാല് കോടിയിൽപ്പരം രൂപ കുടിശ്ശിക വന്നതിനെത്തു ടർന്നാണ് വിതരണക്കാർ സ്റ്റെന്റുകൾ നൽകാതായതെന്ന് എം പി കുറ്റപ്പെടുത്തി വയനാട് തിരുനെല്ലി അപ്പപ്പാറ ഗിരിവികാസ് ട്രൈബൽ പരിശീലന കേന്ദ്രത്തിലെ ഹോസ്റ്റലിൽനിന്ന് ചാട്ടിപ്പോയ നാല് ആൺകുട്ടികളെ അവരുടെ വീടുകളിൽ നിന്ന് ുക്ണ്ടെത്തി

എസ്

സിയും പ്ലസ്ടുവും തോറ്റ കുട്ടികളെ വീണ്ടും പരീക്ഷയെഴുതാൻ പ്രാപ്തമാക്കുന്ന കേന്ദ്രമാണി ത് കുട്ടികൾക്കിടയിലെ വഴക്കിനെത്തുടർന്നാണ് ഇവർ ചാടി പ്പോയതെന്ന് അധികൃതർ അറിയിച്ചു ഇടുക്കിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ സ്ത്രീ ഉൾപ്പെടെ രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേ റ്റു പെരിയാർ കടുവാ സങ്കേതത്തിന് സമീപത്തെ മുല്ലയാർ എസ്റ്റേറ്റിലെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാ യിരുന്നു കാട്ടുപോത്തിന്റെ ആക്രമണം

റവന്യൂ പൊലീസ് വനം ഉദ്യോഗസ്ഥർ അടുത്തദിവസം തന്നെ ഇവരെ ഒഴിപ്പിച്ചേക്കുമെന്നാണ് സൂചന പ്രഖ്യാപിച്ച താങ്ങുവിലയേക്കാൾ കൂടിയ വിലയ്ക്ക് നാളികേരം സംഭരിക്കാൻ നടപടിയുണ്ടാകണമെന്ന് കോഴി ക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ക്രാർഷിക വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു സഹകരണ സംഘങ്ങളെക്കൂടി പദ്ധ തിയിൽ ഉൾപ്പെടുത്തണ്മെന്നും യോഗത്തിൽ ആവശ്യമു യർന്നു

ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ലൈസൻസില്ലാത്ത ഡ്രൈവർമാരും രേഖകളില്ലാത്ത വാഹന ങ്ങളും സർവ്വീസ് നടത്തുന്നത് നിരോധിക്കാൻ ഡി ടി

മെഡിക്കൽ ക്യാമ്പിൽ രോഗബാധ കണ്ടെത്തിയ വർക്ക് ചികിത്സ ഉറപ്പാക്കി പ്രതിരോധ പ്രിവർത്തനങ്ങളും ഊർജ്ജിതമാക്കിയിട്ടുണ്ട്